താഴെയായി

ന് ഇന്നലെ കൂടുതൽ പ്പ്ർക്ക് രോഗമുക്തി

പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ടവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു

കേന്ദ്രങ്ങളിൽ ഗോത്ര സ്വാതന്ത്രൃ സമര സേനാനികൾക്കായി മ്യൂസിയങ്ങൾ സ്ഥാപിക്കും

ആന്ധ്രാപ്രദേശ് അസം ഹിമാചൽപ്രദേശ് മണിപ്പൂർ മേഘാലയ മിസോറം നാഗാലാൻഡ് പഞ്ചാബ് തമിഴ്നാട് ത്രിപുര ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ സിക്കിം എന്നിവയാണ് മറ്റ് സംസ്ഥാനങ്ങൾ കൊറോണക്കാലത്ത് അധികവിഭവമായാണ് ഇത് നൽകുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു

വാക്സിൻ ലഭ്യത സംബന്ധിച്ച എല്ലാ വശങ്ങളും വിദഗ്ദ്ധ സമിതി പരിഗണിക്കുമെന്ന് കേന്ദ്ര ആരോഗൃ മന്ത്രാലയം അറിയിച്ചു

മോസ്കോയിലെ ഗമാലേയ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച വാക്സിന്റെ ആദ്യ ഡോസ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മകൾക്കാണ് നൽകിയത് വാക്സിൻ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ശക്തമായ പ്രതിരോധ ശേഷിയുണ്ടെന്നും പുടിൻ പറഞ്ഞു

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പ്രവേശന പ്രക്രിയയെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു

ഗുണമേൻമയുള്ള മരുന്നുകൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനാണ് ഇവ ആരംഭിച്ചതെന്ന് കേന്ദ്ര രാസവസ്തു വളം മന്ത്രാലയം അറിയിച്ചു

രാജ്യത്തെ തനതായ വാസ്തുവിദ്യാ സൌന്ദര്യത്തെക്കുറിച്ചും സ്മാരകങ്ങളെയും ക്ഷേത്രങ്ങളെയും പരാമർശിച്ച ശ്രീ നിഷാങ്ക് വാസ്തുവിദ്യ ചരിത്രം സംസ്ക്കാരം മതം എന്നിവയിൽ അധിഷ്ഠിതമാണെന്ന് പറഞ്ഞു

ഹൈദരാബാദിലെ നാഷണൽ അക്കാഡമി ഓഫ് റിസർച്ച് മാനേജ്മെന്റിലാണ് കൃഷി മേഘ് സജ്ജമാക്കിയിട്ടുള്ളത്

ജി സി സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായാണിത് ഗാന്ധിയൻ ചിന്തയും തത്വശാസ്ത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച വെബിനാർ പരമ്പരയിലെ ആദ്യപ്രഭാഷണമാണിത്

പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചും തിരച്ചിൽ ്ട്രിക്കുതുടരുകയാണ്

ദേശീയ ദുരന്തപ്രതികരണ സേനയുടെ നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്

ജാഗ്രത മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല കേരളത്തിൽ ദിവസങ്ങളായി പെയ്യുന്ന മഴയ്ക്ക് ഇന്ന് മുതൽ ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത്

തേക്കടിയിൽ നിന്ന് ബോട്ടുമാർഗം അണക്കെട്ടിൽ എത്തിയ സംഘം പ്രധാന അണക്കെട്ട് ബേബി ഡാം ഗാലറി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി

ജലനിരപ്പ് അനുവദനീയ സംഭരണ ശേഷിയിൽ എത്തുന്നതിനു മുമ്പായി വെള്ളം സ്പിൽവേ വഴി ഒഴുക്കി വിടണമെന്ന് കേരളം വീണ്ടും തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടു ഉപസമിതി അംഗങ്ങൾ ഓൺലൈൻ വഴി ഇന്ന് യോഗം ചേരും

വിശദാംശങ്ങളുമായി ദേവിപ്രിയ

കേരളത്തിൽ കോഴിക്കോട് ഉൾപ്പെടെ രാജ്യത്തൊട്ടാകെ അനുവദിച്ച ഒൻപത് മ്യൂസിയങ്ങളിൽ രണ്ടെണ്ണം പൂർത്തിയായി

വിർചൽ റിയാലിറ്റി ഓഗ്മെന്റഡ് റിയാലിറ്റി ഉൾപ്പെടെയുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് മ്യൂസിയങ്ങൾ ഒരുക്കുക

ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

ബന്ധങ്ങൾക്കു വിഘാതമുണ്ടാകുന്ന ഇക്കാലത്ത് ഭാഷയുടെ പഠനം തികച്ചും പ്രസക്തമാണെന്ന് കോഴ്സ് ഉദ്ഘാടനം ചെയ്ത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു